ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടു ത്താനും അതിർത്തി തർക്കങ്ങൾ പ്പരിഹരിക്കാനും കൂടിക്കാഴ്ച്ച വഴിയൊരുക്കുമെന്ന് ചൈനീസ് സ്ഥാനപതി

മുത്തൂറ്റ് ജീവനക്കാരുടെ പണിമുടക്ക് ഒത്തുതീർന്നു

ങ്ങ ൽ ഇന്തൃ ചൈന അനൌപചാരിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്തി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇന്ന് തമിഴ്നാട്ടിലെ മാമല്ലപുരത്തെത്തും ചെന്നൈയിൽ വിമാനമിറങ്ങുന്ന ചൈനീസ് പ്രസിഡന്റ് റോഡ്മാർഗമായിരിക്കും മാമല്ലപുരത്ത് എത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വിമാ നത്തിൽ ചെന്നൈയിലെത്തിയ ശേഷം ഹെലിക്കോപ്റ്ററിൽ മാമല്ലപു രത്ത് ഇറങ്ങും ഏഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളായ ഇന്ത്യയും ചൈനയും പരസ്പരം ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളല്ലെന്ന് ഡൽഹിയിൽ ചൈനീസ് സ്ഥാനപതി വൃക്തമാക്കി ഇരുരാജൃങ്ങളും തമ്മിലുണ്ടാകുന്ന സഹകരണം മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതക്കും വികസനത്തിനും വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പറ ഞ്ഞു രണ്ടുരാജൃങ്ങൾക്കുമിടയിലെ ഉഭയ്കക്ഷി ബന്ധങ്ങൾ ശക്തി പ്പെടുത്താനും അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനും മോദി ഷീ കൂടിക്കാഴ്ച്ച വഴിയൊരുക്കുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യയും ചൈനയും ഉൾപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാർ ഉഭയ കക്ഷി വ്യാപാരം ഇന്ത്യയിലെ നിക്ഷേപാവസരം തുടങ്ങിയ വിഷയ ങ്ങളിൽ ഊന്നിയായിരിക്കും ഉച്ചകോടിയെന്നാണ് വിലയിരുത്തൽ ഭീകരവാദം ഇല്ലായ്മ ചെയ്യുന്നതിനാവശ്യമായ നടപടികളും ഇരു നേതാക്കളും ചർച്ച ചെയ്യും കശ്മീർ വിഷയത്തിൽ അഭിപ്രായ വൃത്യാസം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ചൈന അനൌപചാരിക ഉച്ചകോടി നട ക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച്ച യിൽ ഷീ ജിൻപിങ്ങിന്റെ ചില പരാമർശങ്ങളിൽ ഇന്ത്യ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്

ഫ്ളാറ്റ് ഉടമകൾ അവ രുടെ ക്ലെയിമുകൾ സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലമായി ഒരാ ഴ്ച്ചക്കകം സമർപ്പിക്കണമെന്നും നഷ്ടപരിഹാര സമിതിയുടെ ആദ്യ യോഗം ആവശ്യപ്പെട്ടു അതിനിടെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് മുന്നോടിയായി വിദഗ്ധ എഞ്ചിനിയർ ശരത്ത്

ഇന്ന് മരടിലെ പൊളിക്കേണ്ട ഫ്ളാറ്റുകൾ അദ്ദേഹം സന്ദർശിക്കും

കൂടത്തായി ദുരൂഹമരണക്കേസിൽ പൊലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും ഇന്നലെ ജോളി അന്വേഷണ സംഘത്തിന്റെ ചോദൃം ചെയ്യലിനോട് സഹകരി ച്ചതായി വടകര റൂറൽ എസ്പി മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണ ത്തിൽ നിരവധി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അവ വെളിപ്പെടുത്താ നാവില്ലെന്നും അദ്ദേഹം അറിയിച്ചു

കോഴി ക്കോട് ് കെട്ടാങ്ങ ലിലെ പ്രാദേശിക നേതാവിന്റെ കൂടുംബം നൽകിയ പരാതിയിൽ കോഴി ക്കോട് സിറ്റി പൊലീസാണ് അന്വേഷണം നടത്തുന്നത് കുടുംബാം ഗങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം ബന്ധപ്പെട്ട ബ്യൂട്ടീ പാർലർ ഉടമകളിൽ നിന്നും മൊഴിയെടുത്തു ജോളിയുടെ ഭൂമി ഇട പാടുകളുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പരിശോ ധന നടത്തി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്

തൊഴിലാളികളുടെ വേതന വർദ്ധന ആവശ്യം മാനേജ്മെന്റ് ത്ത്വത്തിൽ അംഗീകരിച്ചു

ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകന്റെ സാന്നിദ്ധ്യത്തിലാ യിരുന്നു ചർച്ച താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചു വിട്ടത് മൂലം കെഎസ്ആർടിസിയിൽ ഇന്നലെയും നിരവധി സർവ്വീസുകൾ റദ്ദാ ക്കി

ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ താൽപരൃം സംരക്ഷി ക്കാൻ കേന്ദ്രം നിയമ നിർമ്മാണം നടത്തില്ലെന്ന് കാസർകോട്ട് പറ ഞ്ഞെന്ന റിപ്പോർട്ടുകൾ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ഇതുസംബന്ധിച്ച് ചില മാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടക്കുന്നതായി അദ്ദേഹം കോഴിക്കോട്ട് പ്രസ്താ വനയിൽ അറിയിച്ചു ആവശ്യമെങ്കിൽ ശബരിമല ആചാര സംരക്ഷ ണത്തിന് നിയമനിർമ്മാണം വേണമെന്ന് തന്നെയാണ് പാർട്ടി നിലപാ ടെന്നും അദ്ദേഹം വൃക്തമാക്കി സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ നിയമനിർമ്മാണത്തിന് അവ കാശമില്ലായെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അധികാരം കിട്ടിയാൽ നിയമം പാസാക്കുമെന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാ ണെന്ന് ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി എറണാകുളം നഗരത്തിലെ വൈറ്റില കുണ്ടന്നൂർ ഫ്ളൈഓവറു കൾ അടുത്ത മാർച്ചിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കും കഴിഞ്ഞ ദിവസം നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ മുഖ്യമന്ത്രി പിണ റായി വിജയൻ എത്രയും വേഗം പാലങ്ങൾ പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദേശം നൽകി

പാലം നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും സംസ്ഥാന ഗവൺമെന്റാണ് വഹിക്കുന്നത് പൊതുജനാരോഗൃ കേന്ദ്രങ്ങളിലെത്തുന്ന അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും എല്ലാ ആരോഗ്യപരിരക്ഷയും സൌജന്യമായി നൽകുന്ന സുരക്ഷിത് മാതൃത്വ ആശ്വാസൻ സുമൻ പദ്ധതിക്ക് ദേശീ യതലത്തിൽ തുടക്കമായി ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ഡോ ഹർഷ വർദ്ധനും സംസ്ഥാന ആരോഗൃ മന്ത്രിമാരും പങ്കെടുത്ത ചടങ്ങിലാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മാതൃ ശിശു മരണനിരക്ക് കുറക്കാനും മികച്ച ആരോഗൃ സേവനങ്ങൾ ലഭൃമാക്കാനും ലക്ഷൃമിട്ടാണ് പദ്ധതി ആവിഷ്ക്കരിച്ചത്

നിതി ആയോഗ് നിർദേശപ്രകാരമാണ് റെയിൽവെ ബോർഡ് ചെയർമാൻ വി

യാദവ് ഉന്നതാധികാര സേന രൂപീകരിച്ചത് ലോക വനിതാ ബോക്സിങ്ങ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മൂന്ന് താരങ്ങൾ മെഡൽ ഉറപ്പിച്ചു മേരികോമിന് പുറമെ മഞ്ജുറാണിയും ലൌലീനയും ജമുന ബോറോയും ചാമ്പ്യൻഷിപ്പിന്റെ സെമിയിൽ കട ന്നു ഫൈനലിൽ പരാജയപ്പെട്ടാലും ഇവർക്ക് വെങ്കലം ലഭിക്കും

ബോക്സിങ്ങിൽ എട്ട് ലോകമെഡലുകൾ സ്വന്തമാക്കുന്ന ആദ്യുതാരം എന്ന ബഹു മതിയിലേക്കാണ് മേരികോമിന്റെ നീക്കം ദക്ഷിണാഫ്രിക്കക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം

അർദ്ധ സെഞ്ചറിയുമായി ക്യാപ്റ്റൻ വിരാട് കോലിയും അജിങ്കൃ രഹാനെയുമാണ് ക്രീസിൽ മായങ്ക് അഗർവാളിന്റെ സെഞ്ചറിയാണ് ഇന്തൃക്കു മികവേറിയ ഓപ്പ ണിങ്ങ് സമ്മാനിച്ചത്

അദ്യ ദിവസം മീറ്റ് റെക്കോർഡോടെ സർവ്വീസസിന്റെ പോൾവോൾട്ട് താരം സുബ്രഹ്മണ്യ ശിവ സ്വർണം സ്വന്തമാക്കി വനി തകളുടെ ജാവലിൻ ത്രോയിൽ റെയിൽവേയുടെ അന്നുറാണി പതി നായിരം മീറ്റർ പൂരുഷ വിഭാഗത്തിൽ ഒഎൻജിസിയുടെ സുരേഷ് കുമാർ വനിതാ വിഭാഗത്തിൽ റെയിൽവെയുടെ എൻ

ആദ്യ ദിനത്തിൽ കേരളത്തിന് മെഡലുകളൊന്നും ലഭിച്ചിട്ടില്ല സന്തോഷ്ട്രോഫി ഫുട്ബോൾ ദക്ഷിണമേഖലാ യോഗ്യതാ മത്സ രങ്ങൾ നവംബർ അഞ്ചിന് കോഴിക്കോട്ട് ആരംഭിക്കും

ഒൻപതാം തീയതി രണ്ടാം മത്സരത്തിൽ കേരളം തമിഴ്നാടിനെ നേരിടും തൃശൂർ കോട്ടപ്പുറത്ത് നാളെ ആരംഭിക്കുന്ന ചാമ്പൃൻസ് ബോട്ട് ലീഗ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വിനോദ സഞ്ചാര വകുപ്പും മുസിരിസ് ബോട്ട് ക്ലബ്ബും ചേർന്നാണ് ലീഗ് സംഘ ടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്നലെ കോട്ടപ്പുറത്ത് വിളംബര ഘോഷയാത്ര നടത്തി പൊന്നാനിയിലെ പുതിയ ഹാർബർ നാളെ മുതൽ പൂർണതോ തിൽ പ്രവർത്തനസജ്ജമാകും മേഖലയിലെ മുഴുവൻ ബോട്ടുകളും നാളെ മുതൽ പുതിയ ഹാർബറിലെത്താൻ തീരുമാനിച്ചിട്ടുണ്ട്

ശ്രീരാമകൃഷ്ണൻ കഴിഞ്ഞയാഴ്ച്ച വിളിച്ച ബോട്ടുടമ കൾ മത്സ്യത്തൊഴിലാളികൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത് വയനാട്ടിലെ റവന്യൂ പട്ടയ ഭൂമിയിൽ പതിനോരായിരത്തോളം വീട്ടിമരങ്ങൾ കാലപ്പഴക്കം കൊണ്ടും മറിഞ്ഞുവീണും നശിക്കുകയാ ണെന്ന് റവന്യൂപട്ടയ ഭൂമി സംരക്ഷണ സമിതി അറിയിച്ചു

ഈ വിഷയത്തിൽ നാളെ കൽപ്പറ്റ യിൽ കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്

മുരിക്കാശ്ശേരിയിൽ ആദ്യ വീടിന് രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ തറക്കല്ലിടും ഭവനരഹിത രായ ഭിന്നശേഷിക്കാർ വിധവകൾ കിടപ്പുരോഗികൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് കരുതൽ സ്പർശം എന്ന് രണ്ടാംഘട്ട പദ്ധതി നട പ്പാക്കുന്നത്

ശ്രീ രാമകൃഷ്ണൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും